മറ്റ് പിന്നാക്ക തരംതിരിക്കുന്നത് പരിശോധിക്കുന്ന കമ്മീഷന്റെ കാലാവധി കേന്ദ്രമന്ത്രിസഭ ആറുമാസത്തേക്ക് നീട്ടി

പൌരത്വ ഭേദഗതി നിയ്മം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു കേന്ദ്രഗവണ്മെന്റ് നാലാഴ്ചയ്ക്കകം മറുപടി നല്കണമെന്നും കോടതി

നേപ്പാളിൽ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃത്ദേഹം നാളെ നാട്ടിലെത്തിക്കാൻ ഊർജ്ജിത ശ്രമം

മെഡൽ പട്ടികയിൽ മഹാരാഷ്ട്ര ഒന്നാമത്

മന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് മാധ്യമ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബഹാം

കേന്ദ്രഭരണ പ്രദേശമായ ദാദ്രനാഗർ ഹവേലി ദാമൻ ദിയുവിന്റെ തലസ്ഥാനം ദാമൻ ആയിരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ദാദ്രനാഗർ ഹവേലി ദാമൻ ദിയു എന്നിവ ഒന്നാക്കിയതിനെ തുടർന്ന് ചരക്ക് സേവന നികുതി മൂലൃ വർദ്ധിത നികുതി എക്സൈസ് നികുതി എന്നിവയിൽ ഭേദഗതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നല്കി

ന്യൂസ്ഡസ്ക് ആകാശവാണി

റെയിൽവേ റോഡ് ഹൈവേ ഗതാഗതം പെട്രോളിയം പ്രകൃതിവാതകം എന്നീ മേഖലകളിലാണ് കാലതാമസം ഉണ്ടായ പദ്ധതികൾ ഇൻഷുറൻസ് പദ്ധതികളായ പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമയോജന പ്രധാൻമന്ത്രി സുരക്ഷ ബീമയോജന എന്നിവയിലെ പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തി ഈ വർഷത്തെ ആദ്യത്തെ പ്രഗതി ആശയവിനിമയമായിരുന്നു ഇത്

വിവിധ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന കുട്ടികൾക്ക് വർഷം തോറും നൽകുന്നതാണ് ഈ പുരസ്കാരം ധീരതാ സാമൂഹ്യസേവനം പഠനം ആശയം കലാ സംസ്കാരം കായിക മേഖലകളിലെ മികവ് എന്നിവയാണ് പുരസ്കാരത്തിനായി കണക്കിലെടുക്കുന്നത്

താനാജി ദി അൺസംഗ് വാരിയർ എന്ന ഛത്രപതി ശിവജിയെ കുറിച്ചുള്ള സിനിമയ്ക്ക് നികുതിക്കുള്ളവ് അനുവദിക്കുമെന്ന് ആദിത്യ താക്കറെ പറഞ്ഞു

രാജൃത്തെ കാർഷിക വിപണി മെച്ചപ്പെടുത്താൻ നിരവധി കർഷകക്ഷേമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാൻമന്ത്രി കൃഷി സിൻചായ് യോജന പ്രധാൻമന്ത്രി ഫസൽ ഭീമാ യോജന പ്രധാൻമന്ത്രി കിസാൻ മാൻധൻ യോജന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻനിധി കോൾഡ് സ്റ്റോറേജ് നിർമ്മാണം എന്നിവ ഇവയിൽ ചിലതാണ് രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ഗവണ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു

സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനായി നേപ്പാൾ ടൂറിസം വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിക്കും തിരുവനന്തപുരം ചേങ്കോട്ടുകോണം സ്വദേശികളായ ഒരു കുടുംബവും കോഴിക്കോട് കുന്ദമംഗലും സ്ലദേശികളായ മറ്റൊരു കുടുംബവുമാണ് അപകടത്തിൽ പ്രിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

വിഷയത്തിൽ നാലാഴ്ചയ്ക്കുള്ളിൽ മറുപടി സമർപ്പിക്കണമെന്ന് കേന്ദ്രഗവണ്മെന്റിന് കോടതി നിർദ്ദേശം നൽകി

പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് നിർത്തിപ്പയ്ക്കണമെന്നും ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ പ്രവർത്തന്ങൾ നീട്ടി വയ്ക്കണമെന്നുമായിരുന്നു ചില ഹർജികളിലെ ആവശ്യം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു സിക്ക് ബുദ്ധ ക്രിസ്റ്റ്യൻ ജൈന പാർസി മത വിഭാഗങ്ങളിൽ നിന്നുള്ള കൂടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതാണ് ബിൽ

ന്യൂസ് ഡസ്ക് ആകാശവാണി

മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്ത്

പത്തൽഗഡി പ്രസ്ഥാനത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്നാണ് പശ്ചിമ സിംഗ്ഭം ജില്ലയിൽ ഒരു നേതാവിനെ ഉൾപ്പെടെയുള്ളവരെ തട്ടിക്കൊണ്ടു പോയത്

സ്റ്റാർട്ടപ്പ് ഇന്ത്യ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ജൽ ജീവൻ പദ്ധതി തുടങ്ങിയവ അടിസ്ഥാനമാക്കിയ നിരവധി നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ വിവിധ മന്ത്രാലങ്ങളുടെ വകയായി ഉണ്ടാകും

ക്രിക്ക്സന്യം നടത്തിയ തിരച്ചിലിനിടെ പ്രദേശത്ത് ഒളിച്ചു ക്ഴിയുന്ന ഭീകരർ സേനാംഗങ്ങൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു

കമ്പനിയുടെ തെലങ്കാനയിലെ രുദ്രാരമ്മിലുള്ള പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനും സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിതല സമിതി അനുവാദം നൽകി